ജെ പിയുടെ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ

ഡി

ജെ പി എം പി മാരായ വി മുരളീധരനും നളിൻകുമാർ കട്ടീലും ഇന്ന് സന്നിധാനത്തെത്തും

ജെ

അവിടെ പ്രതിഷേധം അതിരുവിട്ടപ്പോ ഴാണ് ഗവൺമെന്റ് ഇടപെട്ടതെന്ന് അദ്ദേഹം വൃക്തമാക്കി മലപ്പുറത്ത് സി

എം രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മുഖ്യമന്ത്രി ശബരിമലയിലെ കാര്യങ്ങൾ നോക്കാൻ ദേവസ്വംബോർഡു ണ്ട് ഭക്തർക്കും വിശ്വാസികൾക്കും എല്ലാ സംരക്ഷണവും ഗവൺമെന്റ് ഒരു ക്കും അക്രമങ്ങളെ ശക്തമായി നേരിട്ട് ക്രമസമാധാനം സംരക്ഷിക്കുകതന്നെ ചെയ്യും ശബരിമല കൈയ്യടക്കി തകർക്കാനാണ് ബി ജെ

അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അവർ ഓർക്കണമെന്നും മുഖ്യ മന്ത്രി പറഞ്ഞു

ഈ ആവശ്യം ഉന്നയിച്ച് യു ഡി എഫ് സംഘം ഇന്ന് നിരോധന ഉത്തരവ് ലംഘിക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ അറിയിച്ചു ഒൻപത് മണിയോടെ പത്തനംതിട്ടയിൽ യോഗം ചേർന്ന ശേഷം പുറപ്പെടുന്ന യു ഡി എഫ് സംഘത്തിൽ പ്രതിപക്ഷ നേതാ വിന് പുറമെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഘടകകക്ഷി നേതാക്കൾ തുട ങ്ങിയവർ ഉണ്ടാകുമെന്ന് ചെന്നിത്തല വെളിപ്പെടുത്തി യുവതീ പ്രവേശന മല്ല സന്നിധാനത്ത് ഭക്തർക്ക് രക്ഷയില്ലാത്ത ഗുരുതരമായി സാഹചര്യമാണ് ഇപ്പോഴത്തേതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പൊലീസിന്റെ തേർവാ ഴ്ചയാണ് സന്നിധാനത്തും പരിസരത്തും നടക്കുന്നത്

ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി ആഭ്യന്തരവകുപ്പ് ഒഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു രദ്ദേഷ്ടങ ശബരിമല തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ബി

പി എം പിമാരായ വി മുരളീധരനും നളിൻകുമാർ കട്ടീലും ഇന്ന് ശബരി മലയിൽ ദർശനത്തിനെത്തും പത്തുമണിയോടെ നിലയ്ക്കലിലെത്തുന്ന എം പിമാർക്കൊപ്പം ബി

പി സംസ്ഥാന സെക്രട്ടറി ജെ ആർ പത്മകുമാറും മറ്റ് നേതാക്കളും ഉണ്ടായിരിക്കും നാളെ കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണനും ശബരിമലയിലെത്തും

കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമനിക്കും അംഗങ്ങളായ കെ മോഹൻകുമാർ പി മോഹനദാസ് എന്നി വർ നിലയ്ക്കലും പമ്പയിലും പരിസ്ര പ്രദേശങ്ങളിലും ഭക്തർക്കായി ഒരു ക്കിയ സൌകര്യങ്ങൾ പരിശോധിക്കും തീർത്ഥാടകർക്ക് അടിസ്ഥാന സൌക ര്യങ്ങൾ ഒരുക്കാതെ മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്ന പരാതി യുടെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം

ജെ പി നേതാവ് പി പി മുകുന്ദൻ ആവശ്യപ്പെട്ടു അന്യ സംസ്ഥാന ഭക്തർക്കുപോലും ആരാധനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുകയാണ് ഇത് കേരളത്തിന് ഭൂഷണമല്ലെ ന്നും വിഷയത്തിൽ ഗവർണർ ഇടപെടണമെന്നും മുകുന്ദൻ കണ്ണൂരിൽ ആവ ശ്യപ്പെട്ടു

എ പറഞ്ഞു നിലമ്പൂരിൽ ഐ

സി നിർമ്മാണ തൊഴിലാളി വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുരളീധരൻ ദർവ്വെട്ടറ ശബരിമലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ വൈകാതെ സന്നിധാനം സന്ദർശിക്കുമെന്ന് ഗവർണർ പി സദാശിവം അറിയിച്ചതായി ശബരിമല കർമ്മ സമിതി അറിയിച്ചു ശ്ബരിമലയിൽ ഭക്തർക്ക് ഏർപ്പെ ടുത്തിയ നിയന്ത്രണങ്ങളും അപര്യാപ്തമായിഅടിസ്ഥാന സൌകര്യങ്ങളും സംബന്ധിച്ച് കർമ്മ സമിതി ഗവർണർക്ക് നിവേദനം നൽകി പ്രശ്നത്തിൽ ഇടപെടാമെന്ന് ഗവർണർ ഉറപ്പുനൽകിയതായും അവർ പറഞ്ഞു

ഇവരുടെ ജാമൃഹർജി നാളെ കോടതി പരിഗണിക്കും

എം ഷാജി സുപ്രീംകോടതിയിൽ ഹർജി നൽകി തെര ഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാൻ ഹൈക്കോടതിക്ക് അധി കാരമില്ലെന്നും അയോഗൃത കൽപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേ ണ്ടത് രാഷ്ട്രപതിയാണെന്നും കെ എം ഷാജി ഹർജിയിൽ പറയുന്നു എതിർ സ്ഥാനാർത്ഥി എം വി നികേഷ്കുമാറിന്റെ പരാതിയിലാണ് ഹൈക്കോടതി ഷാജിയെ അയോഗ്യനാക്കിയത്

രംഭട്ട്ട്ട്ട്ട്ട്ട്ട്ട റിസർവ് ബാങ്കിന്റെ കരുതൽ ധനശേഖരത്തിന്റെ വിനിയോഗം സംബ ന്ധിച്ച് പഠിക്കാൻ വിദഗ്ദ്ധ സമിതി രൂപീകരിക്കുന്നതിന് ഇന്നലെ മുംബൈ യിൽ ചേർന്ന ആർ ബി ഐ ഭരണസമിതി യോഗം തീരുമാനിച്ചു ഇതോടൊപ്പം വായ്പാ കാര്യങ്ങളിൽ വീഴ്ചവരുത്തിയ ബാങ്കുകളോട് സ്വീകരിക്കേണ്ട സമീ പനങ്ങൾക്ക് രൂപംനൽകാൻ മറ്റൊരു സമിതിയും രൂപീകരിക്കും റിസർവ് ബാങ്കിന്റെ കരുതൽ ധനത്തിന്റെ മൂന്നിലൊന്ന് വികസന കാര്യങ്ങൾക്ക് വിട്ടു നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു

പ്രഭാത നമസ്കാരത്തിന് മുൻപുതന്നെ മസ്ജിദുകളിൽ മൌലിദ് സദ സ്സുകൾ സംഘടിപ്പിച്ചു പദരശ്ശിക്കു നബിദിനാഘോഷ പരിപാടികൾ പരിസ്ഥിതി സൌഹൃദമാകണമെന്നും ഘോഷയാത്രകൾ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലാകരുതെന്നും സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്നിവർ കോഴിക്കോട്ട് ആഹ്വാനം ചെയ്തു

ഈഡൻ ഗാർഡനിൽ രാവിലെ ഒൻപതരയ്ക്ക് മത്സരം തുടങ്ങും രണ്ട് കളികളിൽ നിന്ന് ഏഴുപോയിന്റുമായി ഗ്രൂപ്പിൽ മൂന്നാംസ്ഥാ നത്താണ് കേരളം

മൊയ്തീൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

രദ്ദേഷ്ടങ കേരളത്തിലെ ഗവൺമെന്റ് സ്വകാര്യ ആശുപത്രി നഴ്സുമാർക്ക് ആഗോള പഠന പരിപാടിയനുസരിച്ച് ബ്രിട്ടണിലെ ആശുപത്രികളിൽ ജോലിയും പരി ശീലനവും ലഭ്യമാക്കുന്ന പദ്ധതിക്ക് നാളെ കരാർ ഒപ്പിട്ടും ഒഡേപെക്കും ഹെൽത്ത് എജ്യുക്കേഷൻ ഇംഗ്ലണ്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമാണ് കരാ റിൽ ഒപ്പുവെയ്ക്കുന്നത്

ദർവ്വെടെ കാർഷികരംഗത്തെ ഉത്തേജിപ്പിക്കാൻ കർഷകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് മന്ത്രി വി

പ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ പുനർ നിർമ്മാ ണത്തിന് ദീർഘവീക്ഷണത്തോടെ ആസൂത്രണം ആവശ്യമാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയിൽ നബാർഡും തമിഴ്നാട് കാർഷിക സർവകലാശാലയും ചേർന്ന് സംഘടിപ്പിച്ച നവകേരള നിർമ്മിതി ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രദേഷ്ടെടു ബീഡി തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ക്ഷേമനിധിയിൽ അംശാദായം അടയ്ക്കാത്ത കമ്പനികൾക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് മന്ത്രി ടി

ക്ഷേമനിധി അംഗത്വം പല കമ്പനികളും അംഗീകരിക്കുന്നില്ലെന്നും ഇത് ബീഡിത്തൊഴിലാളികളുടെ ആനുകൂല്യം ഇല്ലാ താക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു

ടി ജലീലിനെതിരായ സമരം യു ഡി എഫ് ഏറ്റെടുത്തു ജലീ ലിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും ബഹിഷ്കരിക്കാൻ ഇന്നലെ കൊച്ചി യിൽ ചേർന്ന യു ഡി

സമരം ശക്തമാക്കു ന്നതിന്റെ ഭാഗമായി മറ്റന്നാൾ യു ഡി എഫ് ഘടകകക്ഷികളുടെ യുവജന ട സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തും രംഭട്ട്ട്ട്ട്ട്ട്ട പാവങ്ങൾക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ ലീഗും യൂത്ത്ലീഗും തട്ടിയെ ടുത്തത് കണ്ടുപിടിച്ചതാണ് അവരുടെ വിരോധത്തിന് കാരണമെന്ന് മന്ത്രി ഡോക്ടർ കെ

മലപ്പുറത്ത് സി

എം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ജലീൽ കുറേ കറുത്ത കൊടികൾ കണ്ടാൽ പതറുന്നയാളല്ല താനെന്നും മന്ത്രി പറ ഞ്ഞു രദ്ദേഷ്ടങ അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം സംസ്ഥാനതല സമാപനം ഇന്ന് കാഞ്ഞങ്ങാട്ട് നടക്കും ഉച്ചയ്ക്ക് മന്ത്രി കടക്ക്പള്ളി സുരേന്ദ്രൻ സമാ പന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

ള്ള്ളിട്ടും പ കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് വലിയ വിമാന സർവീസ് അടുത്തമാസം അഞ്ചിന് ആരംഭിക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചതായി എം കെ രാഘവൻ എം പി അറിയിച്ചു

കോഴിക്കോട്ട് നിന്ന് ജിദ്ദയിലേക്കായി രിക്കും സർവീസ്

ഗണിത മേളയിൽ ഹയർ സെക്കൻഡറിയിൽ കോഴിക്കോട് സിറ്റിയും ഹൈസ്കൂൾ വിഭാഗത്തിൽ തോടന്നൂർ ഉപജില്ല യുമാണ് ഒന്നാംസ്ഥാനക്കാരായത് ജില്ലാ സ്കൂൾ കലോത്സവം നാളെ വട കരയിൽ ആരംഭിക്കും പതിനെട്ട് വേദികളിലാണ് മത്സരങ്ങൾ

ഒന്നാം വർഷ പരീക്ഷയ്ക്ക് ഡിസംബർ മൂന്നുവരെ പിഴയില്ലാതെ ഫീസടയ്ക്കാം